പൊതുമരാമത്ത് നയത്തിന് മന്ത്രിസഭാ അംഗീകാരം

ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പങ്കജ് അദ്വാനിക്ക് ജയം

രാജ്യത്തിന്റെ വിപിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് കൊ നിർമ്മിച്ചിട്ടുള്ള ഏകതാമതിലും പ്രതിമയ്ക്കു സമീപം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയ പട്ടേലിന്റെ ധൈര്യം ലോകം ഏകതാ പ്രതിമയിലൂടെ സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ എഞ്ചിനീയിറിംഗ് സാങ്കേതിക വിദ്യാ ശേഷിയുടെ പ്രതീകമാണ് സ്റ്റ്യാച്ചു ഓഫ് യൂണിറ്റി എന്നും ശ്രീ മോദ്ടി പറഞ്ഞു

ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനടുത്തായി സാധു ബെത്തിലാണ് പ്രതിമ സ്ഥിതി പ്രതിമയ്ക്കുള്ളിലായി അണക്കെട്ടും ചുറ്റുവട്ടത്തെ മലനിരകളും വീക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുണ്ട്

പ്രതിമയ്ക്കു ചുറ്റുമുള്ള പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കാനും പദ്ധതിയു ്

കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് നിരന്തരം ഗവൺമെന്റിന്റെ വിവിധ സംരംഭങ്ങൾ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പി ദേശീയാധ്യക്ഷൻ അമിത്ഷാ മുഖ്യമന്ത്രി വിജയ് റുപാനി ഗുജറാത്ത് ഗവർണർ ഒ

കോഹ്ലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റിലെ പട്ടേൽ ചൌക്കിലുള്ള സർദാർ പട്ടേലിന്റെ പ്രതിമയിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആഭ്യന്തരമന്ത്രി ഡൽഹി ഗ്ലവർണർ ഭവന നഗരകാര്യ വികസന മന്ത്രിയുൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയ്ത്തിൽ നിന്നാരംഭിച്ച റൺ ഫോർ യൂണിറ്റി പരിപാടിയ്ക്ക് ആഭ്യന്തരമന്ത്രി പച്ചക്കൊടി കാട്ടി

വിദേശകാര്യമന്ത്രാലയം വിവിധ ഇന്ത്യൻ മിഷനുകളിൽ പ്രതിജ്ഞ എടുക്കൽ നടത്തും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സർദാർ സിനിമ ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്യും പട്ടേലിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി റേഡിയോ ടിവി സന്ദേശങ്ങളും പ്രചരിപ്പിക്കും

പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ വിജയ്ഗോയൽ അർജുൻ റാം മേഘ്വാൾ എന്നിവർ ഉദ്യോഗസ്ഥർക്കായി ഐക്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വദിനം കൂടിയായ ഇന്ന് പാർലമെന്റുംഗങ്ങൾ മുൻപ്രധാനമന്ത്രിക്ക് സ്മരാണാജ്ഞലിയും അർപ്പിച്ചു

പടക്കം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഉത്തരവിനെ പ്രിരാമർശിക്കവെ സാധാരണക്കാരെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിൽ തടയരുതെന്ന് ശ്രീ പൊൻ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു

റഫേൽ ഇടപാടിലെ വിലനിർണ്ണയം അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും കോടതിയുമായി പങ്കുവെയ്ക്കാനാകില്ലെന്നും കാണിച്ചുള്ള സത്യവാങ്മൂലം പത്ത് ദിവസത്തിനകം സമർപ്പിക്കാൻ കോടതി കേന്ദ്രഗവൺമെന്റിനോട് നിർദ്ദേശിച്ചു പരസ്യമാക്കാവുന്ന വിവരങ്ങൾ പരാതിക്കാർക്ക് നൽകാനും ചീഫ് ജസ്റ്റീസ് രഞ്ചൻ ഗോഗോയ് യു ലളിത് കെ

ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടു ്

ഇതിനകം നിർമ്മാണം പൂർത്തിയായ പടക്കങ്ങളുടെ വിപണനം രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ ഇൌ ഉത്സവക്കാലയളവിൽ മാത്രം നടത്താമെന്നും ജസ്റ്റീസുമാരായ എ

തമിഴ്നാട് പുതുച്ചേരി ഉൾപ്പെടുന്ന തെക്കൻ സംസ്ഥാനങ്ങളിൽ പുലർച്ചെ നാലുമുതൽ അഞ്ചൂപ്പർയും രാത്രി ഒൻപതു മുതൽ പത്ത് മണിവരെയും പ്പടക്കം പൊട്ടിക്കാം ആവാസ കേന്ദ്രങ്ങളിൽ സംയുക്തമായി പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾക്കായുള്ള കോടതി നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബ്രാധകമായിരിക്കും ഓൺലൈൻ പടക്ക വിൽപ്പനിയ്ക്കുള്ള വിലക്കും രാജ്യത്തൊട്ടാകെ പാലിക്കേ തുടെ ന്ന് പരമോന്നത കോടതി നിർദ്ദേശിച്ചു

ചിദംബരം ഒരു ഡൽഹി കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ എൻഫോഴ്സ്മെന്റ് വിഭാഗം എതിർത്തു

ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടു കിട്ടണമെന്നും എൻഫോഴ്സ്മെന്റ് വിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടു ്

ചിദംബരത്തിന്റെ ഹർജ്ജിയിൽ നാളെ പ്രത്യേക ജഡ്ജി ഒ

സിബിഐയും എൻഫോഴ്സ്മെന്റ് വിഭാഗവും ഫയൽ ചെയ്ത എയർസെൽ മാക്സിസ് കേസിൽ കഴിഞ്ഞമാസം എട്ടിന് കോടതി ചിദംബരത്തിനും മകൻ കാർത്തിയ്ക്കും അറസ്റ്റിൽ നിന്നും ഇടക്കാല സംരക്ഷണം നവംബർ ഒന്ന് വരെ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു

ന്യൂഡൽഹിയിൽ വിജിലൻസ് ബോധവൽക്കരണ വാരാചരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ആദ്ദേഹം ഗവൺമെന്റ് പ്രവർത്തനങ്ങളിലെ അനാവശ്യമായു ഇഴ്ഞ്ഞു നീങ്ങൽ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ത്കർക്കുന്നതായി ശ്രീ കോവിന്ദ് പറഞ്ഞു

വിവിധ പ്രവർത്തനങ്ങളിലെ ആഴിമതി തടയാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഗവൺമെന്റിനെ സഹ്യായിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു

ഇടതു തീവ്രവാദം ശക്തമായ സ്ഥലങ്ങളിൽസ്വീകരിക്കേ നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ ഉൌർജ്ജിതമാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നലെ അറൻപൂരിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ ദൂരദർശൻ കൃാമറാമാനും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു

കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണീ വിവരം

അംഗിപ്പ്മെടുക്കലും മറ്റ് ആധാർ സേവനങ്ങളും സങ്കീർണ്ണതയില്ലാതെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ഇത്തരം കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്

നയം നടപ്പാക്കുന്നതിന് എഞ്ചിനീയർമാർക്ക് പരിശീലനം നൽകും മരാമത്ത് ഓഡിറ്റ് നിർബന്ധമാക്കും സ്ഥലം കിട്ടാത്തതിനാൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് ഭൂവുടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകി നടപടികൾ വേഗത്തിലാക്കാനും പൊതുമരാമത്ത് നയം ലക്ഷ്യമിടുന്നു

നമ്മുടെ പ്രിയ സംസ്ഥാനത്തിന്റെ പുനർനിർമാണം ത്വരിതപ്പെടുത്താനുള്ള യജ്ഞത്തിനായി നമ്മുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒത്തൊരുമയോടെ വിനിയോഗിക്കാൻ ഈ കേരളപ്പിറവിദിനത്തിൽ പ്രതിജ്ഞയെടുക്കാമെന്ന് ഗവർണർ ആശംസ സന്ദേശത്തിൽ പറഞ്ഞു